പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രധാനമന്ത്രിയുമായുള്ള വെർച്ചൽ കൂടിക്കാഴ്ച നാളെ

കേരളത്തിൽ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളിലേയ്ക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ

എൽ ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ഹൈദരാബാദ് മുംബൈയെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെയും നേരിടും

ഇന്ത്യ വിയറ്റ്നാം നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാവിവികസനത്തിന് തുടക്കംകുറിക്കാൻ ചർച്ച വഴിയൊരുക്കും

അതേസമയം കോവിഡ് വ്യാപനത്തിൽ അടുത്ത രണ്ടാഴ്ച നിർണായകമാണെന്നും ജനങ്ങൾ സ്വയം ലോക്ഡൌൺ പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി കെ

പ്രതിരോധി മരുന്ന് ലഭിക്കും വരെ ജാഗ്രത തുടരണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു

രോഗ ബാധിതരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ

രണ്ടാഴ്ചയ്ക്കിടെ രോഗികളുടെ എണ്ണം വർധിച്ചതും വൈറസിന്റെ പ്രകടമായ മാറ്റങ്ങളുമാണ് ഈ തീരുമാനത്തിനു പിന്നിൽ വാക്സിൻ ഫലപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തേണ്ടതില്ല എന്നാണ് തീരുമാനമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു ക്രിസ്മസ് ആഘോഷങ്ങൾ ഉൾപ്പെടെ നടത്താനാവാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം വൃക്തമാക്കി

നേരത്തെ കോവിഡ് ബാധിച്ചവരും അല്ലാത്തവരും വാക്സിന്റെ മുഴുവൻ ഷെഡ്യുളും എടുക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ നേതൃത്വത്തിൽ ആണ് യോഗം ചേരുന്നത്

ഉദ്യോഗസ്ഥർക്ക് അവരുടെ സ്വന്തം ജില്ലകളിൽ നിയമനം നൽകാൻ പാടില്ലെന്നും കമ്മീഷൻ നിഷ് കർഷിച്ചു തെരഞ്ഞെടുപ്പ് ജോലികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമനടപടികൾ നേരിടുന്നവരോ വീഴ്ചകൾ വരുത്തിയിട്ടുള്ളതോ ആയ ഉദ്യോസ്ഥർക്കും നിയമനം നൽകാൻ പാടില്ല ആറ് മാസത്തിനുള്ളിൽ വിരമിക്കുന്ന ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടൂപ്പ് പ്രവൃത്തികൾക്കായി നിയമിക്കരുത്

ഇതുസംബന്ധിച്ച ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങുമെന്ന് മന്ത്രി കെ

ആർട്സ് ആൻറ് സയൻസ് ലോ മ്യൂസിക് ഫൈൻആർട്സ് ഫിസിക്കൽ എജ്യുക്കേഷൻ പോളിടെക്നിക് കോളജുകളിലും ബന്ധപ്പെട്ട സർവകലാശാലകളിലും അഞ്ച് ആറ് സെമസ്റ്റർ ബിരുദ ക്ലാസുകളും പി

അധ്യയന നഷ്ടം പരിഹരിക്കാൻ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കും

ഇരിട്ടിയിൽ നിന്നെത്തിയ അഗ്നിരുക്ഷാ സേനയും നാട്ടുകാരും മൂന്ന് മണിക്കുറിലധികം അതിസാഹസിക പ്രവർത്തിയിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്